നോവൽ കൊറോണ വൈറസിനെ ചെറുക്കാൻ ആഗോള ശ്രമത്തിന് ലോകബാങ്ക് ആഹാനം ചെയ്തു രോഗബാധ തടയാൻ രാജ്യം സ്വീകരിച്ച നടപടികൾ കേന്ദ്ര മന്ത്രിതല യോഗം വിലയിരുത്തി

ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രച്ചാരണം ഊർജ്ജിതം

സൈനൃത്തിൽ പുതുതായി പ്ത്ത് വിഭാഗങ്ങളെ കൂടി ഗവൺമെന്റ് നിയമിക്കുമെന്ന് രാജ്യരൂക്ഷ്ട് മന്ത്രി രാജ്നാഥ് സിങ്ങ്

കൊറോണ വൈറസ് ബാധ സ്ഥിരീകരിച്ച രാജ്യങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി വേഗത്തിൽ സമാഹരിക്കാവുന്ന സാമ്പത്തിക സാങ്കേതിക വിഭവങ്ങൾ പരിശോധിക്കുകയാണെന്നും ലോകബാങ്ക് പ്രസ്താവനയിൽ പറഞ്ഞു പ്രതിസന്ധിയെ തുടർന്നുള്ള സാമ്പത്തിക സാമൂഹിക പ്രത്യാഘാതങ്ങൾ നിരീക്ഷിക്കുകയാണെന്ന് ലോകബാങ്ക് അറിയിച്ചു

വിവിധ മന്ത്രാലയങ്ങൾ സ്വീകരിച്ച നടപടികൾ യോഗം അവലോകനം ചെയ്തു

പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് കൊറോണ വൈറസ് ബാധ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കാ്യുി കേന്ദ്ര ആരോഗ്യമന്ത്രി ഹർഷവർദ്ധന്റെ അദ്ധ്യക്ഷതയിൽ മന്ത്രിതല സ്ക്ടർല്ം രൂപീകരിച്ചത് കേന്ദ്ര വ്യോമയാന മന്ത്രി ഹർദ്ദീപ്സിംഗ് പുരി വിദ്ദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ആഭ്യന്തര സഹമന്ത്രി ജി

കേരളത്തിൽ സ്ഥിരീകരിച്ച മൂന്ന് കൊറോണ വൈറസ് ക്ക്സുകളുടെ റിപ്പോർട്ടും കൈമാറി

അടിയന്തിര കാരണങ്ങൾകൊണ്ട് ഇന്ത്യ സന്ദർശിക്കേണ്ടവർ ഇന്ത്യൻ എംബസിയെയോ കോൺസുലേറ്റുകളേയോ ബന്ധപ്പെടേണ്ടതാണെന്നും നിർദ്ദേശം നല്കിയിട്ടുണ്ട്

നടപടി ആരെയും ഭയപ്പെടുത്താനല്ലെന്നും കൂടുതൽ ശ്രദ്ധ നൽകാനാണെന്നും മന്ത്രി വൃക്തമാക്കി

തൃശൂർ കാസർകോട് ആലപ്പുഴ ജില്ലകളിൽ കൂടുതൽ ശ്രദ്ധയോടെയുള്ള ഇടപെടൽ നടത്തുന്നുണ്ട്

വിശാഖപട്ടണം വിജയവാഡ എന്നീ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിൽ ഷ്ട്രിശോധന നടന്നുവരികയാണ് ആന്ധ്രാപ്രദേശിലെ തുറമുഖങ്ങളിലും പരിശോധന കർശനമാക്കി

ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഡൽഹിയിലെ ദ്വാരകയിൽ നടക്കുന്ന പൊതു റാലിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും ഇന്നലെ നടന്ന റാലിയിൽ ഡൽഹിയിൽ ബി ജെ

അധികാരത്തിലെത്തിയാൽ ശുദ്ധവായു കുടിവെള്ളം എന്നിവ ലഭ്യമാക്കുമെന്ന് പ്രധാനമന്ത്രി ഉറപ്പു നൽകിയിരുന്നു മുതിർന്ന ബി ജെ

നേതാവും ആഭ്യന്തരമന്ത്രിയുമായ അമിത്ഷാ ബി ജെ

ദേശീയ അധ്യക്ഷൻ ജെ

കോൺഗ്രസിനു വേണ്ടി പഞ്ചാബ് മുഖ്യമന്ത്രി ക്യാപ്റ്റൻ അമീരന്തർ സിംഗ് കൽക്കാജിയിൽ റോഡ്ഷോയിൽ പങ്കെടുത്തു ഡൽഹി മുഖ്യമന്ത്രിയും എ

കൺവീനറുമായ അരവിന്ദ് കെജ്രിവാൾ ദ്വാരകയിൽ റോഡ്ഷോയിൽ പങ്കെടുത്തു

രജിസ്റ്റർ ചെയ്തു

എ

ഐ

ഇത് ഉൾപ്പെടുത്തിയിട്ടില്ല

ഐ എ യുടെ എഫ് ഐ ആറിൽ നിന്നും നീക്കം ചെയ്തിട്ടുണ്ട്

ന്യൂഡൽഹിയിൽ പ്രതിരോധമേഖലയിലെ ഉന്നത ഉദ്യോഗസ്ഥിരൂർട് മൂന്നാമത്തെ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ആദ്ദേഹ്ം

അയൽരാജ്യങ്ങൾ തീവ്രവാദ്യ സ്റ്റ്ലങ്ങൾക്ക് ഭൌതിക സാഹചര്യവും പിന്തുണയുർപ്പ്കൽകുന്നത് ഇന്ത്യയുടെ ക്ഷമയെ പരീക്ഷിക്കുന്നതാണെന്ന് പാക്കിസ്ഥാനെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഇന്ത്യൻ മഹാസമുദ്രത്തിലേയും ഇന്തോ പസഫിക് മേഖലയിലേയും ഭീഷണികളെക്കുറിച്ച് പരാമർശിച്ചു ശ്രീ രാജ്നാഥ് സിങ് അ മേഖലയിൽ സുരക്ഷാ പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിക്കുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ച് ഊന്നിപ്പറഞ്ഞു മേഖലയിൽ സമാധാനം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇതുമായി ബന്ധപ്പെട്ട രാജൃങ്ങളുമായി പ്രതിരോധ സുരക്ഷാ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ഇന്ത്യ പോലുള്ള ഒരു വലിയ രാജ്യം ഏതാനും ചില രാജ്യങ്ങളുമായി മാത്രം സുരക്ഷാ സഹകരണം നടത്താതെ സഹകരണം കൂടുതൽ രാജ്യങ്ങളിലേക്ക് വ്യാപിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു

ഇത് ഇന്ത്യയുടെ പ്രതിരോധ നയതന്ത്രത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും ശ്രീ

ക്യാൻസർ ബോധവൽക്കരണം പ്രതിരോധം ക്യാൻസർ രോഗ നിർണ്ണയം ചികിത്സ എന്നിവയുമായി ബന്ധപ്പെട്ട അവബോധം സൃഷ്ടിക്കുന്നതിനാണ് എല്ലാ വർഷവും ഫെബ്രുവരി നാല് ക്യാൻസർ ദിനമായി ആചരിച്ചു വരുന്നത് മരണസംഖ്യയിൽ ആഗോളതലത്തിൽ രണ്ടാം സ്ഥാനത്താണ് ക്യാൻസർ

ഗ്രൂപ്പ് എ വിഭാഗത്തിൽ പോയിന്റ് നിലയിൽ ഇന്ത്യ ഒന്നാമതാണ് എട്ട് പോയിന്റ്റിന് ഇന്ത്യ സ്വന്തമാക്കിയത് ഗ്രൂപ്പ് സി വിഭാഗത്തിൽ പാകിസ്ഥാൻ രണ്ട്ാർ സ്ത്ഥാനത്താണ്

ആദ്യ ദിനം നടന്ന മത്സരങ്ങളിൽ മഹാരാഷ്ട്രയായിരുന്നു മുന്നിൽ

രാഷ്ട്രീയ റൈഫിൾസ് ട്രൂപ്പും സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പും പൂഞ്ച് മേഖലയിൽ നടത്തിയ സംയുക്ത തെരച്ചിലിലാണ് ഒളിത്താവളം കണ്ടെത്താനായത് ഇവിടെ നിന്ന് നിരവധി തോക്കുകളും മൂന്ന് ചൈനീസ് ഗ്രനേഡുകളും നാല് ബാറ്ററികളും ഭക്ഷണ പദാർത്ഥങ്ങളും കണ്ടെടുത്തു

ജമ്മുവിൽ ഇന്നലെ നടന്ന പൊതുജനങ്ങളുടെ പ്രതിവാര യോഗത്തിലാണ് അദ്ദേഹം ഇക്കാര്യം ആവർത്തിച്ചത് ജനങ്ങളുടെ വികസന താൽപര്യങ്ങൾക്കാണ് ഗവൺമെന്റ് മുഖ്യ പരിഗണന നൽകുന്നതെന്നും ശ്രീ

ഫാറൂഖ് ഖാനുമായി പ്രശ്നങ്ങൾ ചർച്ച ചെയ്തു

രാജ്യസഭയിൽ ഇന്നലെ ചോദ്യത്തിന് മറുപടിയായാണ് പ്രി്തിരോധ സഹമന്ത്രി ഇക്കാര്യം അറിയിച്ചത്